ഉത്പാദന സംഘടനകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ ചിത്രകൂടിൽ തുടക്കം കുറിയ്ക്കും

പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായി പ്രതിപക്ഷ കക്ഷികൾ നുണപ്രചാരണം നടത്തുകയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ

കേരള സർക്കാരിന്റെ ലൈഫ് മിഷനിൽ രണ്ട് ലക്ഷം വീടുകൾ പൂർത്തിയായതിന്റെ പ്രഖ്യാപനം നാളെ

പ്രധാൻമന്ത്രി കിസാൻ പദ്ധതി പ്രകാരം ഗുണഭോക്താകൾക്കുള്ള കിസാൻ ക്രഡിറ്റ് കാർഡുകൾ പ്രധാനമന്ത്രി വിതരണം ചെയ്യും

ദേശീയ ശാസ്ത്ര ദിനത്തോടനുബർണിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടി രാഷ്ട്രപതി ഉദ്ഘാടനം ് ചെയ്തു രാജ്യത്തെ നവീകരണത്തിനും ഗവേഷണത്തിനുമായി എക്കാലത്തെയും മികച്ച അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാസ്ത്രദിന സന്ദേശത്തിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ വോയ്സ് ശാസ്ത്ര ഗവേഷണത്തിന്റെ പ്രയോജനങ്ങൾ സ്ത്രീകൾ സമൂഹത്തിന്റെ ദുർബല വിഭാഗങ്ങൾ യുവാക്കൾ തുടങ്ങിയ മേഖലകളിലുള്ളവരുടെ നേട്ടങ്ങൾക്ക് ഉപകരിക്കുന്നതാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു

ശാസ്ത്ര മേഖലയിലെ ഉന്നത പഠനത്തിന് സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർവ്വകലാശാലകൾ സ്ത്രീ പ്രാതിനിധിയം ഗണ്യമായി വർദ്ധിപ്പിച്ചുവെന്നും ശ്രീ

ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അർപ്പണമനോഭാവത്തേയും പ്രതിഭാവിലാസത്തെയും ആദരിക്കാനുള്ള അവസരം കൂടിയാണിതെന്നും ദേശീയ ശാസ്ത്രദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു

വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിൽ ശാസ്ത്രജ്ഞർ അണിചേരണമെന്ന് ദിനാചരണത്തിൽ പങ്കെടുക്കവെ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഹർഷ് വർധൻ പറഞ്ഞു ശാസ്ത്ര മേഖലയിലെ സ്ത്രീകൾ എന്നതാണ് ഈ വർഷത്തെ ദേശീയ ശാസ്ത്രദിന പ്രമേയം രാമൻ പ്രഭാവം കണ്ടുപിടിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഇന്ന് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിച്ചത്

രാമന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത രാമൻ പ്രഭാറ്റ്ള്ട്ത് കുറിച്ചുള്ള പ്രഖ്യാപനം ഇതേ തീയതിയിലായിരുന്നു നടന്നത് ക ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആഗോള സമാധാനം നിലനിർത്താൻ പാക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്കെതിരെ ആഗോള തലത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ വർദ്ധിച്ചതായി ന്യൂഡൽഹിയിൽ സെമിനാറിനെ അഭിസംബോധന ചെയ്യവേ ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു നയതന്ത്ര തലത്തിൽ പാക്കിസ്ഥാനുമേൽ ആഗോള സമ്മർദ്ദം വർദ്ധിക്കുന്നതിന്റെ സൂചന പ്രകടമാണ്

അവഗണിക്കപ്പെട്ട മതന്യൂനപക്ഷങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി പാകിസ്ഥാൻ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ജമ്മു കശ്മീരിലെ സ്ഥിതിഗതികൾ അതിവേഗം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നും ഇന്ത്യ യോഗത്തിൽ വ്യക്തമാക്കി

ലഫ്റ്റനന്റ് ഗവർണർ അനീൽ ബയ്ജാൽ ഇന്ന് മേഖലയിൽ സംഘർഷം ഉണ്ടായ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി

ഇന്ന് രാവിലെ വിവിധ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞയും പത്ത് മണിക്കൂറോളം ഇളവ് നൽകിയിരുന്നു പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് തുടരുകയാണ്

സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ യോഗങ്ങളിൽ വിളിച്ചു ചേർത്തു അക്രമസംഭവങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ നേരിട്ട് വിലയിരുത്താൻ ലഫ്റ്റനന്റ് ഗവർണർ ഇന്ന് വടക്ക് കിഴക്കൻ ഡൽഹിയിൽ സന്ദർശനം നടത്തി പ്രാദേശിക ജനവിഭാഗവുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ സമാധാനം നിലനിർത്താൻ എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു

നിരവധിപേർ പോലീസ് പിടിയിലാണ്

വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സുചന ന്യൂസ് ഡെസ്ക് ആകാശവാണി

വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി വിചാരണ കോടതി തനിക്കെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്ന മരണ വാറന്റ് സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്

പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ആറ് പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ ഒരാൾ തിഹാർ ജയിലിൽ തൂങ്ങി മരിച്ചു പ്രായപൂർത്തിയാകാത്ത പ്രതി മൂന്ന് വർഷത്തെ ശിക്ഷാകാലാവധി പൂർത്തിയാക്കി പുറത്തെത്തിയിരുന്നു

അന്തർസംസ്ഥാന ജലവിഷയം ഉൌർജ്ജവിതരണ ലൈൻ കൽകരി ഖനികളുടെ പ്രവർത്തനം റെയിൽ വികസനത്തിനാവശ്യമായ സ്ഥലലഭ്യത കുറ്റകൃതൃങ്ങളുടെ അന്വേഷണം അതിർത്തി കടന്നുള്ള കന്നുകാലികടത്തൽ വാർത്താവിനിമയ ബാങ്കിംഗ് സൌകര്യങ്ങളുടെ അപര്യാപ്തത പെട്രോളിയം പദ്ധതികൾ കേന്ദ്ര നികുതിയുടെ പങ്കുവയ്ക്കൽ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും

ഭേദഗതി നിയമം മൂലം രാജ്യത്തെ ഒരു മുസ്ത്രീമിനൊ മറ്റേതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കോ പൌരത്വം നഷ്ടമാകില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കി തെറ്റിദ്ധാരണ ജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പ്രതിപക്ഷം അവസാനിപ്പിക്കണമെന്നും ശ്രീ

പാർശ്വവൽക്കരിക്കപ്പെട്ട കർഷകരുടെ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ സേവനം ചെറുകിട കർഷകർക്ക് ലഭ്യമാക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പഞ്ചായത്ത് തലത്തിൽ വിപുലമായ പരിപാടികളോടെ ഗുണഭോക്താക്കളുടെ ഒത്തുചേരൽ നാളെ സംഘടിപ്പിക്കും

ഇളവൂരിൽ ഇത്തിക്കരയാറ്റിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയ ദേവനന്ദയ്ക്ക് കേരളം കണ്ണീരോടെ വിടചൊല്ലി നേരത്തെ ദേവനന്ദ പഠിച്ചിരുന്ന വാക്കനാട് സരസ്വതി നികേതൻ വിദ്യാലയത്തിലും ഇളവൂരിലെ വീട്ടിലും പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ ആയിരക്കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു